രാജസ്ഥാൻ റോയൽസ് പോരാട്ടം

തുടർന്ന് പത്തനംതിട്ടയിലെ യു ഡി എഫ് റാലിയെയും അദ്ദേഹം അഭിസംബോധന ചെയ്തു പാലയിൽ അ ന്തരിച്ച മുൻമന്ത്രി കെ

വൈകിട്ട് ആലപ്പുഴ തിരുവനന്തപുരം എന്നിവിടങ്ങളിലും നാ ളെ സുൽത്താൻ ബത്തേരി കോടഞ്ചേരി വ ൂർ തൃത്താല എന്നീ കേന്ദ്രങ്ങളിലും നടക്കുന്ന പൊതുസമ്മേളനങ്ങളിലും അദ്ദേഹം സം സാരിക്കും നാളെ രാവിലെ എട്ടുമണിയോടെ ശ്രീ രാഹുൽ ഗാന്ധി തിരുനെല്ലി ക്ഷേത്രദർശനം നടത്തും

വൈകിട്ട് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ന ടക്കുന്ന പ്രചാരണ റാലിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും

ജെ

കേന്ദ്രമന്ത്രി നിർമല സീതാരാമന്റെ പര്യടനവും ഇന്ന് തുടരുകയാണ് എൻഡിഎ സ്ഥാ നാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കേന്ദ്രമന്ത്രി താ വർചന്ദ് ഗെഹ്ലോട്ട് വൈകിട്ടും മന്ത്രി പീയുഷ് ഗോയൽ നാളെയും കേരളത്തിൽ എത്തും ന്യൂസ് ഡെസ്ക് ആകാശവാണി

സ്വാതന്ത്ര്യം കിട്ടി നിരവധി വർഷം പിന്നിട്ടിട്ടും ഒറീസ ജനതയുടെ നല്ലൊരു വിഭാഗം ഇപ്പോഴും ദാരിദ്ര്യത്തിന്റെ പിടിയിലാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് ഭരണം കൈയ്യാളിയ ബി ജെ ഡി യും കോൺഗ്രസ്സുമാണ് ഇതിന് ഉത്തരവാദികളെന്നും പ്രധാനമന്ത്രി ആരോപിച്ചു

അതിനിടെ ആറാംഘട്ട വോട്ടെടുപ്പിന്റെ വിജ്ഞാപനം ഇന്ന് നിലവിൽ വന്നു വിശദാംശങ്ങളുമായി ബിന്ദു

മുന്നണി സ്ഥാനാർത്ഥികളും ദേശീയ പാർട്ടികളുടെ മുതിർന്ന നേതാക്കളും പിപിധ സംസ്ഥാനങ്ങളിൽ അവ്സാനവട്ട പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുത്ത് അണികൾക്ക് ആവ്വേശിം പക്ർന്നു അവസാനവട്ട തന്ത്രങ്ങൾ മെന്ത്തും നാളെ നിശബ്ദ പ്രചാരണത്തിനിടെ സ്വീകരിക്കേ നയങ്ങളും മുതിർന്ന നേതാക്കൾ ചർച്ച ചെയ്യുകയാണ്

എ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

എ ഗവൺമെന്റിന്റെ ആദ്യ അഞ്ച് വർഷം ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് പരിഹാരം കാണുന്നതിനാണ് പ്രാമുഖ്യം നൽകിയത് എന്നും ഇനി അടുത്ത അഞ്ച് വർഷം ഇന്ത്യയിലെ ജനങ്ങളുടെ സ്വപ്നങ്ങൾക്കും അഭിലാഷങ്ങൾക്കുമായിരിക്കും പ്രാധാന്യം നൽകുകയെന്ന് ദൂരദർശൻ ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ ശ്രീ മോദി പറഞ്ഞു

ജെ

സുൽത്താൻപൂരിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യവെ നടത്തിയ പരാമർശമാണ് വിലക്കിന് ആധാരമായത് പ്രത്യേക മത വിഭാഗത്തേയും ഉദ്ദേശിച്ച് നടത്തിയ പ്രസംഗം അതൃന്തം അപലപനീയമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ ഉത്തരവിൽ വ്യക്തമാക്കി

ജെ പി സ്ഥാനാർത്ഥി ജയപ്രദയ്ക്കെതിരായ വിവാദ പരാമർശത്തിൽ സമാജ്വാദി പാർട്ടി നേതാവ് ശ്രീ

ഇന്നലെ ബി

ഇന്ന് രാവിലെ ആറ് മുതൽ വിലക്ക് പ്രാബല്യത്തിൽ വന്നു

എസ് ഘടിപ്പിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചു ഘടിപ്പിക്കുകയെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ വി

കാന്തറാവു ഭോപ്പാലിൽ അറിയിച്ചു

എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ്

അമേരിക്ക ഇന്നലെ പുറത്തിറക്കിയ ഏറ്റവും പുതിയ യാത്രാ മുന്നറിയിപ്പിൽ പാകിസ്ഥാനെ പൊതുവെ മൂന്നാമത്തെ തലത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്

വോട്ടർമാരെ സ്വാധീനിക്കാൻ അനധികൃതമായി പണം സൂക്ഷിച്ചുവെന്ന വിവരം ലഭിച്ചതിനെ തുടർന്നാണ് തെരച്ചിൽ നടത്തിയതെന്ന് ആദായനികുതി വകുപ്പ് അധികൃതർ അറിയിച്ചു

യാത്രക്കാരുടെ അവകാശങ്ങളും സുരക്ഷയും ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടു

വിശാഖപട്ടണത്ത് തീരസംരക്ഷണ സേനയുടെ നിരീക്ഷണ കപ്പൽ വീര കമ്മീഷൻ ചെയ്യുകയായിരുന്നു അദ്ദേഹം സമുദ്ര അതിർത്തിയിൽ തീര സംരക്ഷണ സേനയ്ക്ക് ഫലപ്രദമായ നിരീക്ഷണം നടത്തുന്നതിന് വീര സഹായകരമാകും

പൂനെയിൽ നിന്നുള്ള ദമ്പതികൾ ഫയൽ ചെയ്ത ഹർജിയിൽ നിലപാട് അറിയിക്കാൻ അവശ്യപ്പെട്ട് ജസ്റ്റിസ് എസ്

ബോബ്ഡെ അധ്യക്ഷനായ ബെഞ്ച് കേന്ദ്രത്തിന് നോട്ടീസ് അയച്ചു

ചിദംബരത്തിന്റെ മകൻ കാർത്തി ചിദംബരത്തിനും ഭാര്യ നളിനി ചിദംബരത്തിനും എതിരെയുള്ള ക്രിമിനൽ കേസ് നടപടികൾ റദ്ദാക്കിക്കൊ ുള്ള മദ്രാസ് ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യാൻ സുപ്രീം കോടതി വിസമ്മതിച്ചു ഇവർക്കെതിരെയുള്ള കള്ളപ്പണ കേസിൽ നടപടി റദ്ദാക്കിക്കൊ ുള്ള മദ്രാസ് ഹൈക്കോടതി ഉത്തരവിനെതിരെ ആദായ നികുതി വകുപ്പ് നൽകിയ ഹർജിയിൽ നിലപാട് അറിയിക്കാൻ ഇരുവരോടും ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബെഞ്ച് ആവശ്യപ്പെട്ടു

മൊഹാലിയിലെ ബിന്ദ്ര സ്റ്റേഡിയത്തിൽ രാത്രി എട്ടിനാണ് മത്സരം

എന്നാൽ ഒരു ഓവർ ബാക്കിനിൽക്കെ അഞ്ചു വിക്കറ്റ് നഷ്ടത്തിൽ മും ബൈ ലക്ഷ്യത്തിലെത്തുകയായിരുന്നു

ഇതോടെ സംസ്ഥാനത്തെ ഏറ്റവും ചൂടേറിയ പ്രദേശമായി തൽച്ചാർ മാറി